വോട്ടെടുപ്പിന് തുടക്കമായി

രാഷ്ട്രീയകക്ഷികളും സഹകരിക്കണമെന്ന് ഗവർണർ അസമിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു

വിക്കറ്റിന്റെ വിജയം

കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

ജാർഖണ്ഡിി്ല്ന്റ് വികസനത്തിനായി കോൺഗ്രസിനും ജെ

എം നും വൃക്ത്യമായ് മാർഗ്ഗരേഖയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധുംകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു ആദിവാസി വിഭാഗങ്ങള്ളിട്ടെ താ്ൽപര്യങ്ങളെ ഹനിക്കുന്ന നയമാണ് ബി ജെ പി യുടേതെന്ന് മഹാസക്യിൽത്തിനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജെ എം

വ്യാവസായിക കർഷക സംഘടനാ പ്രതിനിധികൾ ധനകാര്യ വിദഗ്ദ്ധർ എന്നിവരിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടും അടുത്തവർഷം ഫെബ്രുവരി ഒന്നിന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ തന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത് സമ്പദ്ഘടനയിലെ നവാഗതരായ ഫിൻടെക് ഡിജിറ്റൽ മേഖലയിൽ ഉള്ളവർ എന്നിവരുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്

രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോപനപരമായ നിലപാട് സ്വീകരിക്കരുതെന്നും കൊൽക്കത്ത രാജ്ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അഭ്യർഥിച്ചു ദേശീയ പൌരത്വ രജിസ്റ്റർ പൌരത്വ ഭേദഗതി ബിൽ എന്നിവ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പശ്ചിമബംഗാൾ ഗവൺമെന്റ് പത്രങ്ങളിൽ നൽകിയ പരസ്യം പിൻവലിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ബംഗാളിലെ മുർഷിദാബാദ് ബിർളം ദക്ഷിണപർഗനാസ് ബുർദ്വാൻ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ സംഭവങ്ങൾ നടക്കുന്നതെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു

സംസ്ഥാനത്തെ നിരവധി പ്രദേശങ്ങളിൽ പ്രക്ഷോഭകർ റോഡ് ഗതാഗതം തടസപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാകാരണങ്ങളാൽ അധികൃതർ ആറ് ജില്ലകളിൽ ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു

കഴിഞ്ഞ് ്മൂന്ന് ദിവസത്തിനിടയിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ക്ഷ്യൂപ്പെട്ടിട്ടില്ല

ഗുവാഹത്തിയിലും ദിബ്രുഗഡ്ഡിലും സ്ഥിതിഗതിക്ക് ശാന്തമായതിനെ തുടർന്ന് കർഫ്യൂവിൽ ഇളവ് നൽകി പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമങ്ങളിൽ ഏർപ്പെടുന്ന സാമൂഹ്യവിരുദ്ധർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സർബാനന്ത് സോനോവാൾ മുന്നറിയിപ്പ് നൽകി

ബിൽ സംബന്ധിച്ച് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന്റെ തീരുമാനത്തിനും തന്റെ പാർട്ടിയായ ശിവസേനയുടെ സംശയ ദൂരീകരണത്തിനുമായാണ് ഗവൺമെന്റ് കാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഡൽഹി നഗരത്തിൽ പൊലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്

മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും കക്ഷിനേതാക്കളും ഇന്ന് തിരുവനന്തപുരത്ത് സംയുക്ത സത്യാഗ്രഹ സമരം നടത്തും

ന്യൂഡൽഹി ഐ

നികുതിദായകർക്ക് ഒട്ടേറെ സേവനങ്ങളാണ് ഇതുവഴി ലഭ്യമാകുകയെന്ന് വകുപ്പ് അറിയിച്ചു

ഇ ഫയലിംഗ് പോർട്ടലിലൂടെയോ എസ് എം എസ് സൌകര്യം ഉപയോഗിച്ചോ ഉപഭോക്താക്കൾക്ക് കാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാവുന്നതാണ്

കേന്ദ്ര സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വിവിധ ഐസറുകളിലെ ഡയറക്ടർമാർ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവരുടെ സമ്മേളനത്തിലായിരിക്കും അവാർഡുകൾ നൽകുക

സ്വതന്ത്രരാജ്യം ആവശ്യപ്പെട്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാക്കിസ്ഥാനിൽ മുക്തിബ്ഹനി എന്ന വിമോചന സേനയുടെ പ്രവർത്തനമാണ് യുദ്ധത്തിന്റ് കാര്ണമായത്

രണ്ടാം ലോക യുദ്ധശേഷം ഇത്രയധികം യുദ്ധത്തടവുകാരെ പിടികൂടിയ യുദ്ധം മറ്റൊന്നില്ലായിരുന്നു

ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ആയിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്

കിഴക്കൻ പാക്കിസ്ഥാനിലെ സായുധസേനയുടെ പരമാധികാരി ലഫ്റ്റനന്റ് ജനറൽ എ

നിയാസി ഭാരതീയ സേനയുടെ പൂർവ്വ ഈസ്റ്റ് കമാണ്ടിന്റെ ജി

സി ലഫ്റ്റനന്റ് ജനറൽ ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ഭവന നഗരകാര്യവകുപ്പ് സെക്രട്ടറിയും മറ്റ് ഉന്നതരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്

മഴ കനത്തതിനാൽ തേനിയിലെ കമ്പം താഴ്വരയിലെ അരുവികളിൽ ്യൂനീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്

എട്ടീബ്ഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമ്ഉന്നതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയുടെ തെളിവെടുപ്പ് ഇന്നു മുതൽ തുടങ്ങും പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് ഗാർഗിന് മുഖ്യ അനേഷണചുമതലയും ഊർജ സെക്രട്ടറി ഡോ ബി അശോക് പ്രസെന്റിങ് ഓഫീസറായുമാണ് അന്വേഷണ സമിതി രൂപീകരിച്ചത്

ജില്ലാതല ഉദ്ഘാടനം നെടുമ്പന പഴങ്ങാലം തോടിന്റെ ശുചീകരണം നിർവഹിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ